ഫലം പ്രഖ്യാപിക്കുമ്പോൾ എല്ലാ വരെയും തൃപ്തിപ്പെടുത്തേണ്ടതുണ്ടെന്ന് വിധി പ്രഖ്യാ പനത്തിൽ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യ ക്ഷനായ ബെഞ്ച് വൃക്തമാക്കി ഒരു ശതമാനം വിവിപാറ്റ് സ്ലിപ്പുകൾ എണ്ണാമെന്ന് കമ്മീഷൻ കോടതിയെ അറി യിച്ചിരുന്നു

ന്യൂഡൽഹിയിൽ പ്രധാന മന്ത്രി നരേന്ദ്രമോദിയാണ് പത്രിക പ്രകാശനം ചെയ്തത് പാർട്ടി അധ്യക്ഷൻ അമിത്ഷാ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാ ഥ്സിംഗ് തുടങ്ങി പ്രമുഖ നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു

ഭീകരതയോട് യാതൊരു തരത്തിലും സന്ധിയില്ലെന്നും ദേശീയതയോട് പൂർണ്ണ പ്രതിബദ്ധത പുലർത്തുമെന്നും പ്രക ടനപത്രികയിൽ പറയുന്നു പ്രാദേശിക അസന്തുലിതാസവസ്ഥ ഇല്ലാതാക്കും

വൃവസായികൾക്കും ചെറുകിട വ്യാപാരികൾക്കും പെൻഷൻ പദ്ധതി കൊണ്ടുവരും സൌഹാർദ്ദ അന്തരീക്ഷത്തിൽ രാമക്ഷേത്രം നിർമ്മിക്കുമെന്നും പത്രിക വൃക്തമാക്കി സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടു പ്പിന് സ്ഥാനാർത്ഥികളുടെ ചിത്രം ഇന്ന് വൃക്തമാകും നാമനിർദ്ദേശപത്രിക പിൻവലിക്കാവുന്ന സമയപരിധി വൈകിട്ട് മൂന്നിന് അവസാനിക്കുന്നതോടെ മത്സരരം ഗത്ത് ആരൊക്കെയെന്നറിയാം

രാഷ്ട്രീയ നേട്ടങ്ങൾക്കുവേണ്ടിയാണ് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കുന്നതെന്ന് മുതിർന്ന ബി ജെ പി നേതാവും കേന്ദ്രമന്ത്രിയുമായ നിതിൻഗഡ്കരി കുറ്റപ്പെടുത്തി രാഹുൽഗാന്ധി പ്രഖ്യാ പിച്ച മിനിമം വരുമാനം ഉറപ്പാക്കുന്ന ന്യായ് പദ്ധതി പാവ ങ്ങളുടെ വോട്ടു തട്ടാനുള്ള രാഷ്ട്രീയ തന്ത്രമാണെന്നും പി ടി ഐ ക്കു നല്കിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു മുതിർന്ന നേതാക്കളായ എൽ കെ അദ്ധാനി യെയും മുരളീ മനോഹർ ജോഷിയെയും പാർട്ടി ഒതുക്കി എന്ന ആരോപണം ഗഡ്കരി തള്ളിക്കളഞ്ഞു ഈ നേതാക്കളെ പാർട്ടി ആദരിക്കുന്നുണ്ടെന്നും ഇവ രിൽനിന്ന് നിർദ്ദേശവും പ്രചോദനവും പാർട്ടിക്ക് ലഭി ക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു

ജനാധിപത്യവും മതേതരത്വവും ഇല്ലാതാക്കിയ മോദി ഗവൺമെൻറിനെ താഴെ ഇറക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു കൊലപാതക രാഷ്ട്രീയത്തിന് നേതൃത്വം നൽകുന്ന സി

എം നേതാക്കൾക്കുള്ള ഷോക്ക് ട്രീറ്റ്മെൻറാകണം ഈ തിരഞ്ഞെടുപ്പ് ഫലമെന്നും അദ്ദേഹം പറഞ്ഞു കാസർഗോഡ് മണ്ഡലം യു

എഫ് സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണയോഗത്തിൽ പയ്യന്നൂരിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ആൻറണി ഇന്ന് വൈകുന്നേരം കണ്ണൂർ പാർലമെൻറ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ തിരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ ആലക്കോടും കണ്ണൂർ സ്റ്റേഡിയം കോർണറിലും സംസാരിക്കും

സഖ്യഗവൺമെന്റിന് ഇനിയും സാധ്യതയുണ്ടെന്ന് അദ്ദേഹം ഡൽഹിയിൽ ഒരു മലയാളം വാർത്താചാനലിനോട് പറഞ്ഞു

ഇടതുപക്ഷത്തോട് എന്തിനു മത്സരിക്കുന്നു എന്ന ചോദ്യ ത്തിന് ഇനിയും ഉത്തരമായിട്ടില്ലെന്നും അദ്ദേഹം പറ ഞ്ഞു രാഹുലിന്റെ നിലപാട് വൃക്തിപരമായി തനിക്ക് തിരിച്ചടിയാണെന്ന് കരുതുന്നില്ലെന്നും സീതാറാം യെച്ചൂരി അറിയിച്ചു

ഇതിന് കോൺഗ്രസ് അല്ല ഉത്തരവാദിയെന്ന് അദ്ദേഹം കൽപ്പറ്റയിൽ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി കോൺഗ്രസുമായി നീക്കുപോക്കില്ലെന്ന പാർട്ടി കോൺഗ്രസ് എടുത്ത തീരുമാനത്തിന്റെ ചുഴിയിൽ കിടന്ന് സി പി ഐ എം കറങ്ങുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെ ടുത്തി നരേന്ദ്രമോദിയെ താഴെയിറക്കാൻ ഇടതുകക്ഷികൾ ഉൾപ്പെടെ എല്ലാവരും വേണമെന്ന് കോൺഗ്രസും രാഹുലും തീരുമാനിച്ചതിനെ എതിർത്തത് കേരളത്തിലെ സി പി ഐ എമ്മാണെന്ന് ഉമ്മൻചാണ്ടി കുറ്റപ്പെടുത്തി

കേരളത്തിൽ യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ തന്നെയാണ് മത്സ രമെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു

കനേഡിയയിലെ സി ഡി പി ക്യുവിൽ നിന്ന് കൃതൃ മായ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് കിഫ്ബി മസാല ബോണ്ടിൽ പണം സ്വീക രിക്കു ന്ന തെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി

കനേഡിയൻ പെൻഷൻ ഫണ്ട് കൈകാര്യം ചെയ്യുന്ന സി ഡി പി ക്യു ലോകത്തിന്റെ പല ഭാഗങ്ങ ളിലും നിക്ഷേപം നടത്തിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി അറി യിച്ചു ഇതിനെ എതിർക്കുന്ന പ്രതിപക്ഷത്തിന്റെ ലക്ഷ്യം വികസനം തടയുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു താനൂരിൽ എൽ ഡി എഫ് പ്രചരണയോഗത്തിൽ സംസാ രിക്കുകയായിരുന്നു മുഖ്യമന്ത്രി കിഫ്ബിക്കെതിരായ ആരോപണം പ്രത്യേക മാനസികാവസ്ഥയുടെ ഭാഗമാ യാണെന്ന് മുഖൃമന്ത്രി പറഞ്ഞു

നാടിന്റെ വികസനത്തിനുവേണ്ടിയാണ് ഫണ്ട് ചെലവ ഴിക്കുന്നതെന്നും അദ്ദേഹം വൃക്തമാക്കി

രാവിലെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയാണ് എ സി പി പി വാഹിദ് ഡി

കെ ജമാലുദ്ദീൻ എന്നിവർ മൊഴി രേഖപ്പെടുത്തിയത് മൊഴി രേഖപ്പെടുത്തൽ ഒരു മണിക്കൂർ നീണ്ടുനിന്നു പരാതികളിൽ അന്വേഷണം തുടരുമെന്ന് അവർ വൃക്തമാക്കി

അന്വേഷണ ഉദ്യോ ഗസ്ഥർക്ക് കൃത്യമായ മൊഴി നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു തെരഞ്ഞെടുപ്പ് പെരു മാറ്റ ചട്ട ലംഘ നത്തിൽ തൃശൂരിലെ ് എൻ ഡി എ സ്ഥാനാർത്ഥി ഇന്ന് ജില്ലാകല ക്ടർക്ക് വിശദീകരണം നല്കും അയ്യപ്പന്റെ പേരിൽ വോട്ടുതേടി പെരുമാറ്റചട്ടം ലംഘിച്ചെന്ന് കാണിച്ച് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാകലക്ടർ വിശദീകരണം തേടിയിരുന്നു

മേപ്പാടി മുണ്ടക്കൈ പരിസരത്താണ് മാവോയിസ്റ്റുകൾ വ്യാപകമായി പോസ്റ്ററുകൾ പതിച്ചിരിക്കുന്നത്

തുണിയിലെഴുതിയ ബാനറും സ്ഥാപിച്ചിട്ടുണ്ട് തെരെഞ്ഞെടുപ്പ് നിരീക്ഷണത്തിന്റെ ഭാഗമായി പാലക്കാട് ജില്ലയുടെ അതിർത്തി പ്രദേശങ്ങളിൽ പോലീസിന്റെ ബോർഡർ സീലിംഗ് ടീം പരിശോധന ആരംഭിച്ചു വാളയാറിൽ രണ്ടു ടീമുകളാണ് പരിശോധന നടത്തുന്നത്

ഈ മാസം മൂന്നിനാണ് ഉള്ളടക്കത്തിലെ അശ്ലീല സാന്നിധ്യവും അനു ചിത പരാ മർശങ്ങളും മുൻനിർത്തി മദ്രാസ് ഹൈക്കോടതി ടിക് ടോകിന് വിലക്ക് ഏർപ്പെടുത്താൻ കേന്ദ്രത്തിന് നിർദ്ദേശം നല്കിയത് തിരുവനന്തപുരം ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് താപനില നാലു ഡിഗ്രിവരെ ഉയരാൻ സാധൃതയു ണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാവകുപ്പ് അറിയിച്ചു വയനാട് ഒഴികെ മറ്റു ജില്ലകളിൽ മൂന്നു ഡിഗ്രിവരെയും താപനില ഉയർന്നേക്കും ഈ സാഹചര്യത്തിൽ സൂര്യാ തപ സൂര്യാഘാത സാധൃത ഒഴിവാക്കാൻ മുൻകരു തൽ എടുക്കണമെന്ന് സംസ്ഥാന ദുരന്തനിവാരണ അതോറിറ്റി ആവശ്യപ്പെട്ടു ലലലലല കെ എസ് ആർ ടി സി എംപാനൽ ഡ്രൈവർമാരെ പിരിച്ചുവിടണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു

കമ്മീഷൻ അംഗം കെ മോഹൻ കുമാർ പത്രവാർത്തയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത്

സന്തോഷ്ട്രോഫി ദേശീയ ഫുട്ബോൾ ടൂർണ്ണ മെന്റിന് ഇന്ന് ലുധിയാനയിൽ തുടക്കമാവും ഉദ്ഘാ ടന മത്സരത്തിൽ ഗോവ സർവീസസിനെയും ഡൽഹി മേഘാലയെയും നേരിടും നിലവിൽ ജേതാക്കളായ കേരളത്തിന് ഇത്തവണ ടൂർണ്ണമെന്റിൽ യോഗ്യത നേടാൻ കഴിഞ്ഞില്ല

പഞ്ചാബിലെ ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയ ത്തിൽ രാത്രി എട്ടിനാണ് മത്സരം നടിയെ ആക്രമിച്ച കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് നടൻ ദിലീപ് സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇന്ന് പരിഗണിക്കും

ഇത് ചോദ്യം ചെയ്താണ് ദിലീപ് ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകിയത്